ഭീകരതയ്ക്കെതിരെ സുസ്ഥിരവും സുദൃഢവുമായ കാൽവയ്പാണ് പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്ക കുറ്റക്കാർക്കെതിരെ പ്രായോഗിക നടപടി സ്വീകരിക്കണമെന്നും യു എസ് ഭരണകൂടം

ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിയിൽ ഇന്തൃയുടെ പി വി സന്ധു ചൈനയുടെ ചെൻ വൈ യെ നേരിടും

ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇന്ത്യയിൽ സെൽ സ്ഥാപിക്കുന്നതിന് ഫണ്ട് സ്വരൂപിച്ചെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം ചെന്നൈ തിരുനൽവേലി മധുരൈ രാമനാഥപുരം ജില്ലകളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തുന്നത് ഇന്ത്യയിൽ എത്തിച്ച ഇവരെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു

സൈനികരുമായി ആശയവിനിമയം നടത്തുന്ന ശ്രീ രാജ്നാഥ്സിങ് നിയന്ത്രണ രേഖയിലെ സുരക്ഷാ സ്ഥിതിഗതികളും വിലയിരുത്തും സാംബ ജില്ലയിലെ ബസന്തറിലെ കത്തുവ ജില്ലയിലെ ഉജ്ജിൽ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി നിർവ്വഹിക്കും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിങും കരേസനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും പ്രതിരോധമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

ജമ്മുവിലെ അതിർത്തി ജില്ലയായ പൂഞ്ചിലുള്ള മാണ്ഡിയിലാണ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്

പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു

മെന്റർ മേഖലയിലെ പാക് നീക്കത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു ഇന്നലെ രജൌരി ജില്ലയിലും പാകിസ്ഥാൻ പ്രകോപനം നടത്തിയിരുന്നു

വോട്ടെടുപ്പ് ഇന്നലെ തന്നെ പൂർത്തിയാക്കണമെന്ന് ഗവർണർ വാജ്ഭായ് വാല മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സഭയിൽ ഇന്നലേയും ചർച്ച പൂർത്തിയായില്ല

ഇക്കാര്യം ആവശ്യപ്പെട്ട് വീണ്ടും ഗവർണറെ സമീപിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷമേ വോട്ടെടുപ്പ് നടത്തുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു

കമ്മീഷൻ അധ്യക്ഷൻ ഡോ നന്ദകുമാർ സായി നയിക്കുന്ന സംഘം മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളേയും പരിക്കേറ്റവരേയും സന്ദർശിക്കുമെന്നും ഔദ്യോഗക വാർത്താ കുറിപ്പിൽ പറയുന്നു ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരുടേയും പൊലീസ് ഉദ്യോഗസ്ഥരുടേയും യോഗവും വിളിച്ചു ചേർക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡി ജി പി ജില്ലാകളക്ടർ ജില്ലാ പൊലീസ് സൂപ്രണ്ട് എന്നിവരോട് സംഭവത്തെകുറിച്ചുള്ള വിശദാംശങ്ങളും നടപടികളും സംബന്ധിച്ച വിവരം അറിയിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി

വ്യാപാരവുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ ഒഴികെയുള്ള അനിയന്ത്രിത നിക്ഷേപ പദ്ധതികൾ നിരോധിക്കുക നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യമിടുന്നത്

അനിയന്ത്രിത നിക്ഷേപം കണ്ടുക്കെട്ടാനുക് കാരണക്കാരെ ശിക്ഷിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു

ശക്തമായ കാലവർഷം അടുത്ത ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴക്കെടുതികളിൽ ഇതുവരെ രണ്ട് പേർ മരിച്ചു

നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മൂന്ന് പേരെ കണ്ടെത്താൻ ശ്രമങ്ങൾ ഊർജ്ജിതപ്പെടുത്തി

ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജറ്റ്യൂതിപാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്

പമ്പയിലെ ജലനിരപ്പ് ഉയിർക്ക് ർബരിമല പമ്പാ ത്രിവേണി നടപ്പാതയിലും വെള്ളം കയറിയതിനാൽ തീർത്ഥാടകരുടെ സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്തെ ചെല്ലാനത്ത് കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി

ചില ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തിങ്കളാഴ്ചവരെ നീട്ടിയിട്ടുണ്ട്

സയിദിന്റെ നേരത്തേയുള്ള അറസ്റ്റുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങൾക്കോ ലഷ്കർ ഇ തയ്ബയുടെ പ്രവർത്തനങ്ങൾക്കോ യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു

അമേരിക്കൻ ബഹിരാകാശ് യാത്രികരായ നീൽ ആം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നിവരെ വഹിച്ച് ഈഗിൾ പേടകം ചന്ദ്രനിൽ ഇറങ്ങി മാനവരാശിയുടെ ഒരു സ്ഥപ്ന സാഫല്യമായിരുന്നു ആ നിമിഷം കോളിൻസ് ആയിരുന്നു നിയന്ത്രണ പേടകത്തെ നയിച്ചിരുന്നത്

ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയശേഷം രണ്ടാം തവണയാണ് പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്

രാജ്ഗഡിൽ നിന്ന് പൂനെയിലേക്ക് പ്ടോപ്പുകൃത്ായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ ട്രക്കുമായി ക്ടൂട്ടിയിടിക്കുകയായിരുന്നു

ഇന്നലെ മുംബൈയിൽ അദ്ദേഹം പൊതുമേഖലാ ബാങ്കുകളുടെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി